സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ കാലവർഷം ശക്തമായി

ജമ്മു കശ്മീരിലെ സാംബാ ജില്ലയിൽ പാകിസ്ഥാൻ റെയ്ഞ്ചർമാർ വെടിനിർത്തൽ ലംഘിച്ച് നടത്തിയ ആക്രമണത്തിൽ നാല് ബി എസ് എഫ് ജവാന്മാർ വീരമൃത്യു വരിച്ചു മൂന്നു ജവാന്മാർക്ക് പരിക്കേറ്റു രാജ്യാന്തര അതിർത്തിയിലാണ് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘി ച്ചത് ഇന്നു പുലർച്ചെയായിരുന്നു ആക്രമണം കൂടുതൽ വിവരങ്ങൾ ലഭ്യ മായിട്ടില്ല

കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലും പാലക്കാട് അട്ടപ്പാടി മേഖലയിലും ഇന്നലെ വൈകിട്ട് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്

ആനക്കാംപൊയിൽ മുത്തപ്പൻപുഴ വെള്ളരിമല ജീരക പ്പാറ കുരോട്ട്പാറ പാത്തിപ്പാറ കോളനി എന്നിവിടങ്ങളിലാണ് ഉരുൾ പൊട്ടി യത് പുഴയോര പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി

ഇതിൽ നാല് കുടുംബങ്ങളെ പുല്ലൂരാംപാറ സെന്റ് ജോസഫ് യു പി സ്കൂളിലേക്ക് മാറ്റി മുത്തപ്പൻ പുഴയിൽ ദുരിതാ ശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്

് ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി കൂടരഞ്ഞി കാരശ്ശേരി കോടഞ്ചേരി പഞ്ചായത്തുകളിലെ സ്കൂളുകൾക്ക് ജില്ലാ കലക്ടർ ഇന്ന് അവധി നൽകി ഇരുവഞ്ഞിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്നാണ് അവധി നൽകി യത്

ജില്ലയിൽ രണ്ട് പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക് കർണാടക വനത്തിൽ ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കണ്ണൂർ ജില്ലാ അതിർത്തിയിലെ കാര്യങ്കോട് പുഴ കരകവിഞ്ഞ് ഒഴുകി ചെറുപുഴ പഞ്ചായത്തിലെ കാനംവയൽ കോളനി മലവെള്ളപാച്ചിലിൽ ഒറ്റപ്പെട്ടു

കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിൽ ഉണ്ടായ ഒൻപതാം വളവിലാണ് വ്യാപകമായി മണ്ണിടിഞ്ഞു കൊണ്ടിരിക്കുന്നത് അട്ടപ്പാടി ചുരത്തിൽ വലിയ വാഹനങ്ങളുടെ രാത്രിയാത്രക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അട്ടപ്പാടി ബ്ലോക്കിലെ സ്കൂളുകൾക്കും അങ്കൺവാടികൾക്കും പാലക്കാട് ജില്ലാ കലക്ടർ ഇന്നും അവധി പ്രഖ്യാപിച്ചു

ഏലം കുരുമുളക് വാഴ ജാതി കൃഷികളാണ് നശിച്ചതിൽ ഏറെയും ഇടുക്കി വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടിയിൽ ഉരുൾപൊട്ടി അര ഏക്കറോളം സ്ഥലം ഒലിച്ചുപോയി ഇടമലക്കുടിയിലെ ആദിവാസി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്

മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് കനത്ത മഴയിൽ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു താഴ്ന്ന പ്രദേ ശങ്ങളിൽ വെള്ളം കയറി നിരവധി കൂടുംബങ്ങളെ ദുരിതാശ്വാസ കൃാമ്പു കളിലേക്കുമാറ്റി കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആലപ്പുഴ ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു

എല്ലാ ജനറേറ്ററുകളും പൂർണ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങി കുള്ളാർ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞു ഒഴുകുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രമുഖ പദ്ധതികളുടെ നടത്തിപ്പ് അവ ലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര മന്ത്രിമാരുടെ യോഗം വിളിച്ചു പാർലമെന്റ് ഹൌസിൽ ചേരുന്ന യോഗ ത്തിൽ പങ്കെടുക്കാൻ എല്ലാ മന്ത്രിമാരോടും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടു ണ്ട് ജൻ ഔഷധി ആയുഷ്മാൻ ഭാരതി ഫസൽ ബീമ യോജന ഉജ്ജ്വൽ യോജന മുദ്ര യോജന സ്റ്റാർട്ടപ്പ് എന്നിവയുൾപ്പെടെ പ്രമുഖ പദ്ധതികളെല്ലാം അവലോകന വിധേയമാക്കുമെന്നാണ് റിപ്പോർട്ട് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും

ത്തോട് ബന്ധപ്പെട്ട് ഒരാളെകൂടി പ്രത്യേക അന്വേഷണസംഘം അറസ്റ് ചെയ്തു ഗൌരി ലങ്കേഷിനെ വധിച്ച സംഘത്തിലുൾപ്പെട്ടയാൾ എന്ന് സംശ യിക്കുന്ന പരശുറാം വാഗ്മറെയാണ് വിജയ്പുര ജില്ലയിൽ നിന്ന് പിടിയി ലായത്

കേസിൽ ഇതുവരെ ആറുപേരെ അന്വേഷ ണസംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്

നിപ്പ വൈറസ് ബാധയ്ക്കെതിരെ ജാഗ്രത തുടരുന്നതിനിടെ നിപ സംശയിച്ച് ഇന്നലെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേ ശിപ്പിച്ചു പനി ബാധിതനായ ഇയാൾ നിരീക്ഷണത്തിലാണെന്ന് ജില്ലാ മെഡി ക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു ലോകം ഇനി റഷ്യയിലേക്ക്

നാളെ ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്ക് ആദ്യ മത്സരത്തിൽ ആതിഥേയരായ റഷ്യ സൌദി അറേ ബൃയെ നേരിടും മോസ്കോയിലെ ലുഷ്നികി സ്റ്റേഡിയത്തിലാണ് മത്സ രം ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി

മത്സര ടിക്കറ്റ് ഉള്ളവർക്ക് വിസയില്ലാതെ റഷ്യയിൽ പ്രവേശിക്കാൻ ഫാൻ ഐ ഡി ലഭ്യമാക്കിയതോ ടെയാണ് ആരാധകർ റഷ്യയിലേക്ക് കുതിക്കുന്നത്

എറണാകുളം ജില്ലയിലെ കാർഷിക കൂട്ടായ്മ ഉല്പാദിപ്പിച്ച തോട്ടറ ബ്രാന്റ് അരി ഇന്ന് വിപണിയിൽ ഇറക്കും ബ്രാൻഡ് പ്രഖ്യാപ നവും വിപണനവും മന്ത്രി വി

സുനിൽകുമാർ അരയൻകാവിൽ ഉദ്ഘാ ടനം ചെയ്യും

കൊട്ടിയൂർ കൈശാഖ മഹോത്സവത്തിലെ രോഹിണി ആരാധനയും ആലിംഗന പുഷ്പാ ഞ്ജലിയും ഇന്ന് നടക്കും നാല് ആരാധനകളിൽ അവസാനത്തേതാണ് രോഹിണി ആരാധന തിങ്കളാഴ്ച ഉച്ചവരെ മാത്രമാണ് സ്ത്രീകൾക്ക് അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടാകുക

തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിൽ പുതുതായി സർവ്വീസ് ആരംഭിച്ച അന്ത്യോദയ എക്സ്പ്രസ്സിന് മലപ്പുറം ജില്ലയിൽ ഒരിടത്തും സ്റ്റോപ്പ് അനുവദിക്കാത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു തിരൂരിൽ ചേർന്ന സിറ്റിംഗിലാണ് കമ്മീഷൻ അംഗം കെ

സ്റ്റോപ്പ് അനുവദിക്കാത്തിന് റെയിൽവെ ഡിവിഷണൽ മാനേജരോട് വിശദീകരണം തേടുമെന്നും കമ്മീ ഷൻ അംഗം അറിയിച്ചു

കാസർകോടിനെ ശിശു സൌഹൃദ ജില്ലയാക്കി മാറ്റാൻ ജില്ലാതല ശിശുസംരക്ഷണ സമിതിയോഗം തീരുമാനിച്ചു

ആഡംബര ബൈക്കുകൾ മോഷ്ടിച്ച് രജിസ്ട്രേഷൻ മാറ്റി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ രണ്ട് പേരെ വാളയാറിൽ പോലീസ് പിടികൂടി വാളയാർ ഡാം റോഡിൽ ജയകുമാർ തൃശൂർ വെറ്റിലപ്പാറ നിധിൻ എന്നിവരാണ് പിടിയിലായത്

കേരള ചലച്ചിത്ര അക്കാഡമിയുടെ പത്താമത് ദേശീയ ചലച്ചിത്രോത്സവത്തിന് പയ്യന്നൂരിൽ ഇന്ന് സമാപനമാകും

കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ സി ബാലകൃഷ്ണൻ മാസ്റ്റർ നിര്യാതനായി

്സംസ്കാരം ഇന്ന് ഉച്ചക്ക് ശേഷം കൊളച്ചേരി പഞ്ചായത്ത് ശ്മശാനത്തിൽ നടക്കും

വനിതാ മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സുഗ തകുമാരി ടീച്ചറുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച കമ്മിറ്റി ഇന്ന് കോഴിക്കോട്ട് യോഗം ചേരും

ഹയർ സെക്കന്റി ഒന്നാംവർഷ പ്രവേശനത്തിലെ ആദ്യ അലോ ട്ട്മെന്റ് ലഭിച്ചവർ ഇന്ന് വൈകിട്ട് അഞ്ചിനു മുമ്പ് പ്രവേശനം നേടേണ്ടതാ ണ് ഇന്നലെയാണ് ആദ്യ അലോട്ട്മെന്റിലെ പ്രവേശനം ആരംഭിച്ചത് ഒന്നാ മത്തെ ഓപ്ഷൻ ലഭിച്ചവർ ഫീസടച്ച് സ്ഥിരം പ്രവേശനം നേടേണ്ടതാണ്

ന്യൂഡൽഹിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി എ

വാജ്പേയിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അറിയിച്ചു മൂത്രാശയരോ ഗത്തെ തുടർന്നാണ് അദ്ദേഹത്തെ തിങ്കളാഴ്ച എയിംസിൽ പ്രവേശിപ്പിച്ചത്